ഏറ്റവും കൂടുതൽ രോഗികൾ എറണാകുളം ജില്ലയിൽ

കേരളത്തിൽ വരും ദിവിസ്ങ്ങളിൽ ഏർപ്പെടുത്തേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് തീങ്കളാഴ്ച ചേരുന്ന സർവ്വകക്ഷി യോഗം ചർച്ച ചെയ്യുമെന്ന് ്മുഖൃമന്ത്രി പിണറായി വിജയൻ

സംസ്ഥാനത്ത് വാര്ട്ന്ത്യു നിയന്ത്രണം തുടരുന്നു കണ്ണൂർ ജില്ലയിൽ ചില ഇടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു

രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു

പൂരത്തിനിടെ മരം വീണ് അപകടമുണ്ടായത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി

ചികിത്സയ്ക്ക് അമിത തുക ഈടാക്കരുതെന്നും സർക്കാർ നിർദ്ദേശിച്ചു എന്നാൽ എല്ലാ ആശുപത്രികളിലും ഒരേ നിരക്ക് ഇൌടാക്കാനാകില്ല എന്ന നിലപാടാണ് മാനേജ്മെന്റുകൾ സ്വീകരിച്ചെന്നാണ് സൂചന

എറണാകുളം കോഴിക്കോട് ഉൾപ്പടെ പ്രക് ജില്ലകളിൽ പതിനായിരത്തിലേറെ പേരാണ് കോവിഡ് ചിക്രിത്സയിലുള്ളത്

കൂടുതൽ വിവരങ്ങളുമായി എറണാകുളത്തു നിന്നും ആകാശവാണിയ്ക്കുവേണ്ടി ജോസഫ് മാർട്ടിൻ

അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തിരുങ്ങുന്നവർ സത്യവാങ്മൂലം കൈയിൽ കരുതണമെന്നും മുഖ്യമീന്തി അറിയിച്ചു

സർക്കാരിനൊപ്പം നിൽക്കാൻ കോൺഗ്രസ് പ്രവർത്തകരോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു കോവിഡുമായി ബന്ധപ്പെട്ട അനാവശൃ പരിഭ്രാന്തി ഒഴിവാക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു

വിവരമറിഞ്ഞെത്തിയ പൊലീസ് കുതിരയോട്ടം നിർത്തി വയ്പ്പിക്കുകയും സംഘാടകർക്കെതിരെ കേസെടുക്കുകയുമായിരുന്നു

വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

എം സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പരാധീനത പരിഗണിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം വാക്സിൻ സൌജന്യമായി നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു

ബോബ്ഡെ ഇണ്ണല്ലെ വിരമിച്ച ഒഴിവിലാണ് എൻ

രമണ സ്ഥാനമേൽക്കുന്നത്

ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമ സ്വരാജ് എന്ന സങ്കൽപത്തിന്റെയും ഗ്രാമ സ്വരാജിലൂടെ പൂർണ സ്വരാജ് എന്ന ദർശനത്തിന്റെയും പ്രായോഗികമായ നടപ്പാക്കലാണ് പഞ്ചായത്തീരാജ് വികേന്ദ്രീകരണത്തിലൂടെ അധികാരം ജനങ്ങളിലേയ്ക്ക് എത്തുക എന്നത് ഉറപ്പാക്കുകയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്

വോട്ടെണ്ണൽ ദിനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം വോട്ടെണ്ണൽ ദിനത്തിൽ ലോക്ഡൌൺ ഉൾപ്പെടെ കർശന നിയന്ത്രണം ആവശ്യപ്പെട്ട് സ്ഥകാര്യ്ക്ക് വൃക്തികൾ നൽകിയ പരിഗണിക്കുന്നത് ഹർജികൾ ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേയ്ക്ക് മാറ്റി

രോഗവ്യാപനം കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അളവിൽ സൌജനൃവാക്സിൻ ലഭ്യമാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സ്വകാര്യമേഖലയുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ ഇൌ യജ്ഞം വിജയിപ്പിക്കാനാകൂ എന്നതിനാലാണ് വാസ്കീൻ നയം ഉദാരമാക്കാനും വികേന്ദ്രീകരിക്കാനും കേന്ദ്രസർക്കാർ തീരുമാനിച്ചതെന്നും കേന്ദ്ര സഹമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു

എൽ ഓക്സിജൻ പ്താന്റ് ഇൻട്രോ ഗുരുതരാവസ്ഥയിലായ കൊവിഡ് രോഗികളുടെ ജീവൻ നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ ഓക്സിജന്റെ ക്ഷാമം രാജ്യത്ത് ചർച്ചാവിഷയമാകുമ്പോൾ കൊല്ലം ജില്ലയ്ക്ക് ആശ്വാസമാകുകയാണ് കെ

വിശദാംശങ്ങളുമായി കൊല്ലത്തു ആകാശവാണി പ്രതിനിധി നീരജ്ലാൽ

അതിനിടെ സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്

ഗൌരിയമ്മ വാർധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുൻ മന്ത്രി കെ

ഗൌരിയമ്മയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു നിലവിൽ അത്യാഹിത വിഭാഗത്തിൽ കഴിയുന്ന ഗൌരിയമ്മ വിദഗ്ദ്ധ സംഘത്തിന്റെ നിരീക്ഷത്തിലാണ്